വ്യക്തമായ ഭൂരിപക്ഷത്തോടെ തിളക്കമാർന്ന വിജയം നേടിയാണ് മോദി വീണ്ടും അധികാരത്തിലെത്തുന്നത് ജീവിതത്തിന്റെ ഓരോ നിമിഷവും രാജ്യക്ഷേമത്തിനായി വിനിയോഗിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം യു ഡി എഫ് തൂത്തുവാരി

കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്തിൽ രണ്ടാം എൻ ഡി എ മന്ത്രി സഭ മറ്റന്നാൾ അധികാരമേറ്റേക്കും ഇതിന് ഒരുക്കങ്ങൾ ന്യൂഡൽഹിയിൽ പുരോ ഗമിക്കുകയാണ് ് ് ് ് ് ് ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിളക്കമാർന്ന വിജയത്തോടെയാണ് വീണ്ടും അധികാരത്തിലെത്തുന്നത്

ജവഹർലാൽ നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കും ശേഷം തുടർച്ചയായ രണ്ടാം തവണ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തുന്ന മൂന്നാമത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി

രണ്ടിടങ്ങളിലാണ് പാർട്ടി മുന്നേറുന്നത്

ഒരിടത്ത് മുന്നേറുന്നു

ഐയും സി പി ഐ എമ്മും രണ്ടിടങ്ങളിൽ വീതം വിജയിച്ചു ഒരിടത്ത് ലീഡ് ചെയ്യുന്ന സി പി ഐ എമ്മിന് മൊത്തം മൂന്നു സീറ്റുകൾ ലഭിച്ചേക്കും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മൂന്നു സീറ്റ് നേടി

കേരള കോൺഗ്രസ് എമ്മിനും ആർ എസ് പിക്കും ഒരു സീറ്റ് വീതമുണ്ട് എൻ സി പിയും സമാജ്വാദി പാർട്ടിയും അഞ്ചിടങ്ങളിൽ വിജയിച്ചു

തെലുഗുദേശം രണ്ട് സീറ്റാണ് നേടിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരാണസിയിൽ നാലരലക്ഷത്തിലേറെ വോട്ടുകൾക്ക് വിജയിച്ചു ബി ജെ പി അധ്യക്ഷൻ അമിത്ഷാ ഗാന്ധിനഗറിൽ അഞ്ച രലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത് കോൺഗ്രസ് അധ്യ ക്ഷൻ രാഹുൽ ഗാന്ധി അമേഠിയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയു മായ സ്മൃതി ഇറാനിയോട് അമ്പത്തയ്യായിരത്തിലേറെ വോട്ടുകൾക്ക് പരാജയപ്പെ ട്ടു മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡ കർണ്ണാടകയിലെ തുംകൂറിൽ പരാജ യപ്പെട്ടു

ജീവിതത്തിന്റെ ഓരോ നിമിഷവും രാജ്യക്ഷേമത്തിനായി വിനിയോഗി ക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ദുരുദ്ദേശ്യത്തോടെ ഒന്നും ചെയ്യി ല്ലെന്നും സ്വന്തം നേട്ടത്തിനായി പ്രവർത്തിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിനുശേഷം പാർട്ടി പ്രവർത്തകരെ അഭി സംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി പുതിയ ഇന്ത്യ കെട്ടിപ്പടുക്കാനാണ് ജനങ്ങളെ സമീപിച്ചതെന്നും അതിന് അവർ അനുഗ്രഹിച്ചെന്നും പ്രധാനമന്ത്രി പറ ഞ്ഞു എതിരാളികൾ ഉൾപ്പെടെ എല്ലാവരെയും ഒന്നിച്ചുകൊണ്ടുപോകുമെന്നും പ്രധാ നമന്ത്രി വ്യക്തമാക്കി ദേശീയതയുടെ യഥാർത്ഥ വിജയമാണിതെന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ പറഞ്ഞു മോദിയുടെ അഞ്ചുവർഷത്തെ വികസന ഭരണ ത്തിന്റെ ജനപ്രീതിയാണ് വിജയമെന്നും ചടങ്ങിൽ പങ്കെടുത്ത അമിത് ഷാ പറഞ്ഞു

തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും കനത്ത പോരാട്ടമാണ് കാഴ്ച വെച്ചത്

കേരളം യു ഡി എഫ് തൂത്തുവാരി

കാസർകോട് കണ്ണൂർപാലക്കാട് ആലത്തൂർ ഇടുക്കി ആറ്റിങ്ങൽ മണ്ഡലങ്ങൾ എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫ് പിടിച്ചെടുത്തു രാത്രി വൈകിയാണ് കേര ളത്തിലെ ഫലപ്രഖ്യാപനം പൂർത്തിയായത്

പൊന്നാനി യിൽ ഇ

കണ്ണൂരിൽ കെ

തൃശൂരിൽ ടി

കൊല്ലത്ത് മികച്ച വിജയം നേടിയ എൻ

തിരുവനന്തപുരത്ത് ഒരു ലക്ഷത്തോളം വോട്ടിനാണ് ശശി തരൂർ ഹാർട്ടിക് വിജയം നേടിയത്

ബി ജെ പിക്ക് ഇത്തവണയും സംസ്ഥാനത്ത് അക്കൌണ്ട് തുറക്കാനായില്ല എൽ ഡി എഫ് വിജ യിച്ച ആലപ്പുഴയിൽ എ

സംസ്ഥാനത്ത് വോട്ടിംഗ് നിലയിലും യു ഡി എഫ് വൻ മുന്നേറ്റം കാഴ്ച വെച്ചു

ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് പറഞ്ഞു ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഏകീകരണമാണ് കേരളത്തിൽ യു ഡി എഫിന് വലിയ വിജയം സമ്മാനിച്ചതെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആലപ്പുഴയിൽ ്പറഞ്ഞു

ഫാസിസത്തിനെതിരായ വിധിയാണെന്നും അവരുടെ ജനകീയ അടിത്തറ തകർന്നെന്നും ആർ എം പി ഐ സംസ്ഥാന സെക്രട്ടറി എൻ

പ്രതീക്ഷിച്ച രീതിയിൽ ഭൂരിപക്ഷം നേടിയതായി വടകരയിൽ വിജയിച്ച കെ മുരളീധരൻ പറഞ്ഞു തെരഞ്ഞെടൂപ്പ് ഫലപ്രഖ്യാപനത്തിനുശേഷം കണ്ണൂർ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ അക്രമസംഭവങ്ങളുണ്ടായി ചെറുവാഞ്ചേരി പാനൂർ തളിപ്പറമ്പ് എന്നി വിടങ്ങളിലാണ് അക്രമമുണ്ടായത് ജില്ലയിൽ പൊലീസ് ജാഗ്രത പാലിച്ചുവരുന്നു

കലക്ടർ പ്രഖ്യാപിച്ച നിരോധനാജ്ഞ ഇന്നുരാവിലെ എട്ടുമണിവരെ തുടരും

ജഗൻമോഹൻ റെഡ്നിയുടെ നേതൃത്വത്തിൽ വൈ എസ് ആർ കോൺഗ്രസ് മന്ത്രി സഭ വ്യാഴാഴ്ച അധികാരമേൽക്കും

പ്തസ് വൺ പ്രവേശനത്തിന്റെ ആദ്യ അലോട്ട്മെന്റ് ലിസ്റ്റ് ഇന്നു പ്രസി ദ്ധീകരിക്കും

അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായി അലോട്ട്മെന്റ് ലഭിക്കുന്ന സ്കൂളിൽ തിങ്കളാഴ്ച വൈകിട്ട് നാലു മണിക്കുമുമ്പ് പ്രവേശനം നേടണം അലോ ട്ട്മെന്റ് ലഭിച്ചിട്ടും താൽക്കാലിക പ്രവേശനം നേടാതിരിക്കുന്ന വിദ്യാർത്ഥികളെ തുടർന്നുള്ള അലോട്ട്മെന്റുകളിൽ പരിഗണിക്കില്ലെന്നും ഡയറക്ടർ അറിയിച്ചു ആദ്യ അലോട്ട്മെന്റിൽ ഒന്നാമത്തെ ഓപ്ഷൻ ലഭിക്കുന്നവർ ഫീസടച്ച് സ്ഥിരപ്രവേശനം നേടണം രണ്ടാമത്തെ അലോട്ട്മെന്റിനുശേഷം ഇതുവരെ അപേക്ഷിക്കാൻ കഴി യാത്തവർക്ക് സപ്പിമെന്ററി അലോട്ട്മെന്റിനായി പുതിയ അപേക്ഷകൾ സ്വീകരി ക്കുമെന്ന് ഹയർ സെക്കന്റി ഡയറക്ടർ അറിയിച്ചു ലണ്ടനിൽ ലോകകപ്പ് ക്രിക്കറ്റിന്റെ മുന്നോടിയായി സന്നാഹ മത്സര ങ്ങൾ ഇന്ന് തുടങ്ങും ബ്രിസ്റ്റോളിൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെയും കാർഡി ഫിൽ ശ്രീലങ്ക ദക്ഷിണാഫ്രിക്കയെയും നേരിടും ഇന്ത്യ നാളെ ന്യൂസിലാന്റുമായി ഏറുമുട്ടും

നാളെ കോട്ടയം വഴി പോകുന്ന എല്ലാ ട്രെയിനുകളും റദ്ദാക്കി ഇന്നും ചില ട്രെയിനുകൾ റദ്ദാക്കിയിട്ടുണ്ട് എറണാകുളം കൊല്ലം പാസഞ്ചർ എറണാകുളം കൊല്ലം മെമു ആലപ്പുഴ എറണാകുളം ആലപ്പുഴ പാസഞ്ചർ എന്നി വയാണ് റദ്ദാക്കിയത്

വൈദികൻ ഫാദർ ഡോക്ടർ വി ശാമുവേൽ കളീക്കൽ നിര്യാതനായി

കണ്ണൂർ ജില്ലയിലെ വിവിധ പള്ളികളിൽ വികാരി ആയിരുന്നു സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് രണ്ടിന് ഏറ്റുകടുക്ക സെന്റ് മേരീസ് ഒ ാ ർ ത്ത ഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും കണ്ണൂരിൽ ഇന്നലെ രാത്രി വീശിയടിച്ച കാറ്റിൽ വ്യാപകമായ കൃഷിനാശമുണ്ടായി

ശക്തമായ ഇടിമിന്നലോടെ മഴയുമുണ്ടായി

ജസ്റ്റിസുമാരായ ബി ആർ ഗവായി സൂര്യകാന്ത് അനിരുദ്ധ് ബോസ് എ

ബൊപണ്ണ എന്നിവരാണ് സ്ഥാനമേൽക്കുന്നത് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് രാവിലെ ഇവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും

വോട്ടെണ്ണൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഫലം പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ കേരളത്തിൽ ഒന്നാമതെത്തിയ ലോക്സഭാ മണ്ഡലം എന്ന ബഹുമ തിയും ദേശീയതലത്തിൽ രണ്ടാമതെത്തിയ മണ്ഡലം എന്ന ബഹുമതിയും ഇക്കുറി ഇടുക്കി നേടി കേരളത്തിൽ വി വി പാറ്റ് മെഷീനുകൾ ആദ്യം എണ്ണിയത് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലാണ്